ഓണമാസത്തിന് തുടക്കം സംസ്ഥാനതല കർഷക ദിനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും

എസ് ഇ ബി സബ് സ്റ്റേഷനുകളും ഇന്ന് നാടിന് സമർപ്പിക്കും

വിയുടെ പ്രവർത്തനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ന്യൂസ് ഡസ്ക്കിൽ നിന്ന് അനുഷ ആത്മപ്രകാശ് വോയ്സ് രുമ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വരവറിയിച്ച് വിളയെടുപ്പിനു തുടക്കം കുറിക്കുന്ന ചിങ്ങമാസത്തിന്റെ ആദ്യ ദിവസം കർഷക ദിനമായും ആഘോഷിക്കുന്നു കോവിഡ് മഹാമാരിയുടെ കരിനിഴലിലാണ് കേരളവും കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലെ പ്രളയത്തിനു ശേഷം ഇക്കൊല്ലം ഇടുക്കിയിലെ ഉരുൾപൊട്ടലും തെക്കൻ ജില്ലകളിലെ വെള്ളപ്പൊക്കവും സംസ്ഥാനത്തിന് ആഘാതമുണ്ടാക്കി അതു കൊണ്ടു തന്നെ ചിങ്ങത്തിന്റെ വരവിനു മുമ്പിൽ സന്തോഷിക്കാൻ മറന്നു നിൽക്കുകയാണ് നാട്ടിലേയും വിദേശത്തേയും മലയാളി സമൂഹം രുമ സംസ്ഥാനതല കർഷക ദിനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായ ബ്ലോക്ക് തല കാർഷിക വിജ്ഞാന കേന്ദ്രങ്ങൾ അദ്ദേഹം ഓൺലൈനായി തൃശൂർ ഒല്ലൂക്കര ബ്ലോക്കിൽ നാടിനു സമർപ്പിക്കുമെന്ന് മന്ത്രി വി

കർഷകർക്കായി തുടങ്ങുന്ന മൊബൈൽ ആപ്പിന്റെയും വെബ് പോർട്ടലിന്റെയും സമർപ്പണവും അദ്ദേഹം നിർവഹിക്കും സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ഓൺ ലൈൻ വെബ് പോർട്ടൽ എന്നിവയും ഇന്ന് പ്രവർത്തനസജ്ജമാകും കാർഷിക വിജ്ഞാന കേന്ദ്രങ്ങൾ ബ്ലോക്കുതലത്തിനു പുറമേ കോർപറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലും ആരംഭിക്കും രുമ ശബരിമലയിൽ ചിങ്ങമാസ പൂജകൾ പുലർച്ചെ ആരംഭിച്ചു ഇന്നലെ വൈകിട്ട് നട തുറന്നു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

രും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ ഇന്നുമുതൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കും ശബരിമലയിൽ തീരുമാനം ബാധകമല്ല കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരേ സമയം അഞ്ചുപേർക്കായിരിക്കും പ്രവേശനം രുമ കേരളത്തിലെ ആദ്യ സോളാർ പാർക്ക് വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പാർക്കിൽ ഉല്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രസരണ ശൃംഖലയിൽ എത്തിക്കുന്ന അമ്പലത്തറ സബ് സ്റ്റേഷനും മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും

എം മണി ചടങ്ങുകളിൽ അധ്യക്ഷനായിരിക്കും ദർദ സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണവും സമ്പർക്ക രോഗികളുടെ എണ്ണവും വീണ്ടും വർദ്ധിക്കുന്നു

നൂറിൽ താഴെ കോവിഡ് കേസുകളുണ്ടായ മറ്റു ജില്ലകളിലും ഏറിയ പങ്കും സമ്പർക്ക രോഗബാധിതരാണ്

കേരള ആർട്ടിസാൻസ് ഡെവലപ്പ്മെന്റ് കോർപ്പറേഷന്റെ അഞ്ചാമത് ശാഖ കണ്ണൂർ ഇരിണാവിൽ ഓൺലൈൻ ആയി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുമ ന്യൂഡൽഹിയിലെ സൈനികാശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി വെന്റിലേറ്ററിൽ തുടരുകയാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിച്ചു അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ മാറ്റമുണ്ടെന്ന് മകൻ അഭിജിത് മുഖർജി ട്വീറ്റ് ചെയ്തിരുന്നു തലച്ചോറിലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ പ്രണബ് മുഖർജിക്ക് കോവിഡും ബാധിച്ചിരുന്നു രുമ ചെന്നൈയിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്ന പ്രശസ്ത ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നതായി അദ്ദേഹത്തിന്റെ മകൻ ശ്രീപദി ചരൺ അറിയിച്ചു അദ്ദേഹത്തിന് ഇപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്ന് ചരൺ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു

പി ബാലസുബ്രഹ്മണ്യം വെന്റിലേറ്ററിലാണ് ചികിത്സയിൽ കഴിയുന്നത്

മണ്ണിനടിയിലെ മനുഷ്യ ശരീര സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന ഉപകരണങ്ങളുമായി ചെന്നൈയിൽ നിന്ന് പ്രത്യേക സംഘം ഇന്നെത്തും ഇന്നലെ രണ്ടു പേരുടെ ശരീരംകൂടി കണ്ടെടുത്തു

ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് കാണാതായവരെ മുഴുവൻ കണ്ടെത്തുന്നുത് വരെ തെരച്ചിൽ തുടരുമെന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന മന്ത്രി എം എം മണി അറിയിച്ചു രുമ കേരള നിയമസഭാ നടപടികൾ ജനങ്ങളിലേക്കെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സഭാ ടി വിയുടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർള വീഡിയോ കോൺഫറൻസിലൂടെ സഭാ ടി

ചടങ്ങിൽ സ്പീക്കറുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമസഭയുടെ പുതുക്കിയ വെബ്സൈറ്റ് മന്ത്രി എ കെ ബാലനും ഉദ്ഘാടനം ചെയ്യും

പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകാൻ നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു പ്രതിഷേധിച്ച യാക്കോബായ വിശ്വാസികളെ പൊലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്

പള്ളിയുടെ താക്കോൽ രാവിലെ ജില്ലാ കലക്ടർക്ക് നൽകാനാണ് നിർദ്ദേശം ദേശ ക്രിക്കറ്റ് ലോകത്തെ എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളാണ് ഇന്നലെ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്രസിംഗ് ധോണിയെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ അഭിപ്രായപ്പെട്ടു മൂന്ന് സുപ്രധാന ഐ സി സി ടൂർണ്ണമെന്റുകളിൽ ഇന്ത്യയെ വിജയിപ്പിച്ച ധോണിയിൽ നിന്ന് ഒരു തലമുറ മുഴുവൻ പ്രചോദനം ഉൾക്കൊണ്ടതായി ഐ

രുദ സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് കോവിഡ് സമാശ്വാസ കാലിത്തീറ്റ ധനസഹായ പദ്ധതി മന്ത്രി കെ

രുമ ശ്രീനാരായണ ഗുരു ജയന്തി ദിനാഘോഷത്തിന്റെ മുന്നോടിയായി ഇന്ന് എസ്

ഡി പി യോഗം പതാകദിനമായി ആചരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഭവനങ്ങളിലും യൂണിയൻ അറിയിച്ചു ഓഫീസുകളിലും ശാഖാ ഓഫീസുകളിലും പീത പതാക ഉയർത്തുന്നത് കോവിഡ് പ്രതിരോധ ചട്ടങ്ങൾ പാലിച്ച് കൊണ്ടായിരിക്കും മഹാമാരിയുടെ സാഹചര്യത്തിൽ ഇൌ വർഷത്തെ ചതയ ദിനാഘോഷത്തിലും സമാധി ദിനാചരണത്തിലും ആളുകൾ കൂട്ടം ചേരുന്നത് ഒഴിവാക്കും രേര ബാലഗോകുലത്തിന്റെ പ്രഥമ സംസ്ഥാന ലവകുശ പുരസ്കാരത്തിന് ശ്രേഷ്ഠഭാരത പരിപാടിയിലെ ജേതാക്കളായ കണ്ണൂരിലെ രാഹുലും ആദിദേവും അർഹരായി ഇന്ന് വൈകിട്ട് കണ്ണൂരിൽ പിന്നണി ഗായകൻ ഡോ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പുരസ്കാരം സമ്മാനിക്കും രുമ മഹിളാ കോൺഗ്രസ് നേതാവും തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയറും ആയിരുന്ന പി വി സരോജിനി നിര്യാതയായി

രുദ വയനാട് കല്ലൂർ വാകേരി കുറുമ കോളനിയിലെ ഒരാൾ എലിപ്പനി ലക്ഷണങ്ങളോടെ മരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

രുര കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മറ്റിയുടെ പുതിയ മന്ദിരം ഇന്ന് തുറക്കും

മൊബൈൽ മോഷണ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത കരിമഠം കോളനിയിലെ അൻസാരിയെ രാത്രി ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ദേഴ ദേശീയപാതകളിലെ നിർമ്മാണ യന്ത്രങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ കർശന സുരക്ഷിത മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നു യാത്രക്കാർക്ക് വ്യക്തമായ ശബ്ദ മുന്നറിയിപ്പ് യന്ത്രോപകരണങ്ങൾക്ക് ലോഹ നിർമ്മിതമല്ലാത്ത ഇന്ധന ടാങ്ക് വാഹന ഓപ്പറേറ്റർമാർക്ക് കൂടുതൽ കാഴ്ച നൽകുന്ന സംവിധാനം എന്നിവ വേണമെന്നാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശം

മണിപ്പൂരിലെ ഇജായ് നദിയ്ക്ക് മുകളിലാണ് പാലത്തിന്റെ നിർമ്മാണം